പാക്കിസ്ഥാൻ ഭീകര പ്രവർത്തകർക്കെതിരെ പ്രതികരിക്കുന്നതിന് പകരം ഹിന്ദുക്കളെ തീവ്രവാദികളെന്ന് വിശേഷിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

ജെ

കേരളത്തിൽ എൽ

എഫിന് നിരുപാധിക പിന്തുണ നൽകാൻ ആം ആദ്മി പാർട്ടി തീരുമാനിച്ചു യേശുദേവന്റെ ഉയിർത്തെഴുന്നേൽപ്പിന്റെ ഭക്തിനിർഭരമായ ഓർമ്മ കളിൽ ഇന്ന് ഈസ്റ്റർ സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ വേനൽമഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി

തെരഞ്ഞെടുപ്പിന് എല്ലാ ഒരു ക്കങ്ങളും പൂർത്തിയാക്കിയതായി മുഖ്യ തെരുഞ്ഞെടുപ്പ് ഓഫീ സർ ടിക്കാറാം മീണ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേള നത്തിൽ അറിയിച്ചു അവസാനവട്ട പ്രചാരണത്തിന് പ്രമുഖ കക്ഷികളുടെ ദേശീയ നേതാക്കൾ സംസ്ഥാനത്തുണ്ട് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് വയനാട്ടിലും കാസർകോട്ടും തെരഞ്ഞെ ടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കും

ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി ഇന്നും വയനാട്ടിൽ തുടരും ജമ്മു കശ്മീരിലെ ഭീകരാക്രമണത്തിൽ മരിച്ച സി ആർ

എഫ് ജവാൻ വി വി വസന്തകുമാറിന്റെ വീട് പ്രിയങ്ക സന്ദർശിക്കും

ഡി എയുടെ പ്രചാരണത്തിന് ബി ജെ പി അധ്യക്ഷൻ അമിത് ഷാ ഇന്നലെ പത്തനംതിട്ടയിലെത്തിയിരുന്നു

തുടർന്ന് ആലപ്പുഴ സന്ദർശനവും അദ്ദേഹം റദ്ദാക്കി

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇന്നലെ കാസർകോട് ജില്ലയിൽ പ്രചാരണത്തിൽ പങ്കെടു ത്തു

എസ്

ജെ പിയും സംഘ്പരിവാർ ശക്തി കളും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മനുഷ്യത്വ രഹിതമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നതെന്ന് സീതാറാം യെച്ചൂരി കുറ്റ പ്പെടുത്തി കാസർകോട് കാലിക്കടവിൽ എൽ ഡി എഫ് പൊതു യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചെയ്യൂരി മറ്റന്നാൾ രാവിലെ ഏഴുമുതൽ വൈകിട്ട് ആറുവരെയാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ് രാവിലെ ആറിന് മോക്ക്പോൾ നടക്കും

പാക്കിസ്ഥാൻ ഭീകര പ്രവർത്തർക്കെതിരെ പ്രതികരിക്കുന്ന തിന് പകരം ഹിന്ദു ക്കൾക്ക് തീവ്രവാദി പട്ടം നൽകാൻ കോൺഗ്രസ് ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ആരോപിച്ചു ഭാരതീയ സംസ്കാരത്തെ മലിനപ്പെടുത്താൻ ഹിന്ദു ഭീകരവാദം എന്ന വാക്ക് അവർ ഉപയോഗിക്കുകയാ ണെന്നും നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ ബറേലിയിൽ പറ ഞ്ഞു പാക്കിസ്ഥാൻ ഭീകരവാദികൾ രാജ്യത്ത് ആക്രമണങ്ങളും സ്ഫോടനങ്ങളും നടത്തുമ്പോൾ അതിനെ എതിർക്കുന്നതിന് പകരം ഹിന്ദുക്കളെ തീവ്രവാദികളായി മുദ്ര കുത്താനാണ് കോൺഗ്രസ് ഉത്സാഹിക്കുന്നതെന്നും നരേന്ദ്രമോദി പറഞ്ഞു

ജെ

കോൺഗ്രസ്സിന്റെ ന്യായ് വരുമാന പദ്ധതി രാജ്യ ത്തിന്റെ തകർന്ന സമ്പദ്വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ ഇന്ധനമാകുമെന്ന് രാഹുൽ ഛത്തീസ്ഗഡ്ഡിലെ ബിലാസ്പൂരിൽ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ പല ത്രത്തിലും അവിശുദ്ധ കൂട്ടുകെട്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ തളിപ്പറമ്പിൽ പറഞ്ഞു ഇത് തിരി ച്ചറിയാൻ വോട്ടർമാർക്ക് സാധിക്കണമെന്നും മുഖ്യമന്ത്രി പറ ഞ്ഞു കോൺഗ്രസ്സിന്റെ കള്ളപ്രചാരണങ്ങൾ കേരളത്തിൽ വില പ്പോവില്ലെന്ന് ബി ജെ പി അഖിലേന്ത്യാ സെക്രട്ടറി വൈ സത്യ കുമാർ ആലപ്പുഴയിൽ പറഞ്ഞു

ഡി എയുടെ വിജയ് സങ്കല്പ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മികച്ച ഭരണത്തിലൂടെ എൻ

എ ഇന്ത്യയെ മികച്ച സാമ്പ ത്തിക ശക്തിയാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു

കർഷകർക്കായി ഒന്നും ചെയ്യാത്ത കേന്ദ്ര ഗവൺമെന്റ് അധി കാരം ജനങ്ങൾ നൽകിയതാണെന്ന കാര്യം മറന്നു പോയതായി എ ഐ

സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി കുറ്റപ്പെടു ത്തി വയനാട് പുൽപ്പള്ളിയിൽ കർഷക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ കാർഷികച്ചമേഖലയ്ക്ക് കഴിഞ്ഞ അഞ്ചുവർഷങ്ങളിൽ നേരിട്ട പ്രതിസന്ധി മനസ്സിലാക്കാൻ കേന്ദ്ര ത്തിന് സാധിച്ചില്ല കടക്കെണിയും അവഗണനയുംമൂലം ഉത്തർപ്രദേശിലെ കർഷകർ നേരിടുന്ന അതേ ദുരിതമാണ് വയ നാട്ടിലെ കാപ്പി കുരുമുളക് കർഷകരും തൊഴിലാളികളും അനു ഭവിക്കുന്നതെന്ന് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു കാർഷിക പ്രതി സന്ധി നേരിടാനാവാതെ നൂറുകണക്കിന് കർഷകർ രാജ്യത്ത് ആത്മഹത്യ ചെയ്യുന്നുണ്ട് അവരുടെ കുടുംബങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കാനാണ് ആഗ്രഹമെന്ന് അവർ അറിയിച്ചു വയ നാട്ടിലെ യു ഡി എഫ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കു കയായിരുന്നു പ്രിയങ്കാ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ പരാജയപ്പെടുന്നതിലൂടെ വയനാട് ലോക്സഭാ മണ്ഡലം ചരിത്രത്തിൽ ഇടം നേടുമെന്ന് സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഹെലികോപ്റ്ററിൽ പറക്കുന്നവർക്ക് വയനാടിന്റെ ജന മനസ്സ് കീഴടക്കാനാവില്ലെന്ന് മാനന്തവാടിയിൽ എൽ ഡി

ജെ പിയെ നേരിടാൻ ഇടതുപക്ഷം ഉൾപ്പെടുന്ന മതേതര സഖ്യത്തിനേ കഴിയൂ എന്നും കോടിയേരി വ്യക്തമാക്കി

ഡി എഫിനെക്കുറിച്ച് ഒന്നും പറയില്ലെന്ന കോൺഗ്രസ് അധ്യക്ഷന്റെ നിലപാട് കോൺഗ്രസ് ഗവൺമെന്റ് നടപ്പാക്കിയ കർഷകദ്രോഹ നടപടികളിൽനിന്ന് ഒഴിഞ്ഞുമാറാനാണെന്ന് അദ്ദേഹം തിരുവമ്പാടിയിൽ പറഞ്ഞു മലയോർ ജനതയെ ആശ ങ്കയുടെ മുൾമുനയിലാക്കിയ ഗാഡ്ഗിൽ ക്സ്തൂരിരംഗൻ റിപ്പോർട്ടുകളുടെ ഉത്തരവാദിത്വത്തിൽനിന്ന് കോൺഗ്രസ്സിന് ഒഴി ഞ്ഞുമാറാനാവില്ലെന്നും കോടിയേരി അറിയിച്ചു അധികാരം നിലനിർത്താൻ മോദിയും അമിത് ഷായും വർഗീയ വിഷം ചീറ്റുകയാണെന്ന് ഭരണ പരിഷ്കരണ കമ്മീഷൻ അദ്ധ്യക്ഷൻ വി

അച്യുതാനന്ദൻ കുറ്റപ്പെടു ത്തി പാലക്കാട് കൊല്ലങ്കോട്ട് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാട്ടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കപട വിശ്വാസ സംരക്ഷകരിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ലാതാ യെന്നും അച്യുതാനന്ദൻ പറഞ്ഞു കോൺഗ്രസ് അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പാക്കിസ്ഥാൻ പതാകയും പാക് അനുകൂല മുദ്രാവാക്യങ്ങളും ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിംലീഗനെതിരെ അമിത് ഷാ പമാർശം നടത്തിയതെന്ന് ബി ജെ പി നേതാവ് നളിൻകുമാർ കട്ടീൽ പറഞ്ഞു കാസർകോട് പ്രസ് ക്ലബ്ബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു നളിൻകുമാർ കേരളത്തിൽ എൽ

എഫിന് നിരുപാധിക പിന്തുണ നൽകാൻ ആം ആദ്മി പാർട്ടി രാഷ്ട്രീയകാര്യ സമിതി തീരു മാനിച്ചു ഡൽഹിയിലെ എ

പി സ്ഥാനാർത്ഥികളെ പിന്തുണ യ്ക്കുമെന്ന് സി

ന്യൂഡൽഹിയിൽ ആം ആദ്മി പാർട്ടി നേതാവ് സോമനാഥ് ഭാര്തിയും സി

എം നേതാവ് നീരോൽപൽ ബസുവും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ച ത് പാർട്ടി നേതൃത്വവുമായി ആലോചിക്കാതെ സംസ്ഥാനത്ത് കോൺഗ്രസ്സിനെയും യു ഡി എഫിനെയും പിന്തുണച്ച ആം ആദ്മി പാർട്ടി സംസ്ഥാന കൺവീനർ സി ആർ നീലകണ്ഠനെ സസ്പെൻഡ് ചെയ്തതായും സോമനാഥ് ഭാരതി അറിയിച്ചു എന്നാൽ എൻ ഡി എയെ പരാജയപ്പെടുത്താൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാനാണ് പാർട്ടി ആവശ്യപ്പെ ട്ടിരുന്നതെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്ര സ്സിനെ പിന്തുണച്ചതെന്നും സി

ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്വീപ് വിഭാഗത്തിന്റെ ഇടുക്കി മണ്ഡലതല പ്രവർത്തനങ്ങൾ സമാപിച്ചു സമാപന സമ്മേളനം സിനിമാ നടൻ അബു സലിം തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് സംവിധാനം ദുരുപയോഗം ചെയ്ത് കോഴി ക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ കേസെടുക്കാൻ തീരുമാനിച്ച നടപടി രാഷ്ട്രീയ പാപ്പരത്വവും ഗൂഢാലോചന യുമാണെന്ന് ജില്ലാ നേതാക്കൾ കുറ്റപ്പെടുത്തി വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്ന് ജില്ലാ ചെയർമാൻ പി ശങ്കരനും ഡി സി സി പ്രസിഡന്റ് ടി സിദ്ദിഖും തെരഞ്ഞെ ടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഉമ്മർ പാണ്ടികശാലയും ആവശ്യ പ്പെട്ടു യേശുദേവന്റെ പുനരുത്ഥാനത്തിന്റെ ഭക്തി നിർഭരമായ ഓർമ്മകളിൽ ഇന്ന് ഈസ്റ്റർ പീഡാനുഭവങ്ങൾക്കും കുരിശുമ രണത്തിനും ശേഷം മൂന്നാം നാൾ യേശുക്രിസ്തു ഉയിർത്തെ ഴുന്നേറ്റുവെന്ന വിശ്വാസത്തിൽ ലോകമെങ്ങും ക്രൈസ്തവർ പ്രത്യാശയുടെ ദിനമായി ഈസ്റ്റർ കൊണ്ടാടുകയാണ് ദേവാ ലയങ്ങളിൽ പ്രത്യേക ഉയിർപ്പ് തിരുനാൾ ആഘോഷങ്ങളും കുർബ്ബാനകളും നടക്കുന്നുണ്ട്

എൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ ജയ്പൂരിൽ അഞ്ച് വിക്കറ്റിന് തോൽപ്പിച്ചു ന്യൂഡൽഹിയിൽ ഡൽഹി കൃാപിറ്റൽസ് അഞ്ച് വിക്കറ്റിന് പഞ്ചാബ് കിങ്സ് ഇലവനെയും തോൽപ്പിച്ചു ഇന്ന് ഹൈദരബാദ് കൊൽക്കത്തയെയും ബാംഗ്ലൂർ ചെന്നൈയെയും നേരിടും സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് ആതി ഥേയരായ പഞ്ചാബ് ലുധിയാനയിൽ സർവ്വീസസിനെ നേരി ടും സെമിഫൈനലിൽ ഗോവയെ തോൽപ്പിച്ചാണ് പഞ്ചാബ് ഫൈനലിലെത്തിയത് സർവ്വീസസ് കർണാടകയെ തോൽപ്പിച്ച് ഫൈനലിസ്റ്റുകളായി സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ശക്തമായ വേനൽമഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോ റിറ്റി മുന്നറിയിപ്പ് നൽകി ഉരുൾപൊട്ടൽ സാധൃത മുൻനിർത്തി വൈകിട്ട് ഏഴുമുതൽ രാവിലെ ഏഴുവരെ മലയോര മേഖലയി ലേക്ക് യാത്ര പരമാവധി ഒഴിവാക്കണം മരങ്ങൾക്ക് താഴെ വാഹ നങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും അതോറിറ്റി നിർദ്ദേശിച്ചു പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത കാറ്റിലും മഴയിലും വ്യാപകമായ കൃഷിനാശം ഉണ്ടായി കല്ലടിക്കോട് കരിമ്പുഴ ഭാഗങ്ങളിൽ നൂറുകണക്കിന് വാഴകളും റബ്ബർമരങ്ങളും വീണു നശിച്ചു ഒറ്റപ്പാലം കോങ്ങാട് മേഖലയിലും മരങ്ങളും വൈദ്യുത തൂണുകളും പൊട്ടിവീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായി

കണ്ണൂരിലെ പ്രസിദ്ധമായ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് തീയതി കുറിക്കുന്ന പ്രക്കൂഴം ചടങ്ങ് ഇന്ന് നടക്കും കാസർകോട് കുമ്പളയിൽ ട്രെയിൻ തട്ടി അമ്മയും മകനും മരിച്ചു മൊഗ്രാൽ മൈമൂൺ നഗറിലെ സുഹൈറ മകൻ മുഹ മ്മദ് ഷസ്ഹാദ് എന്നിവരാണ് മരിച്ചത്